ആദരാഞ്ജലിയർപ്പിച്ചു തണ്ണീർമുക്കം ബണ്ടിന്റെ മൂന്നാംഘട്ടം വൈകാതെ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി മാത്യു ടി തോമസ് മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊല പ്പെടുത്തിയ കേസിൽ ഒരാൾകൂടി പിടിയിലായി പാകിസ്താനിൽ ഇമ്രാൻഖാന്റെ പാകിസ്താൻ തെഹ്രികെ ഇൻസാഫ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി രാജ്യത്തെ ഓഹരി സൂചികകൾ റെക്കോർഡ് നേട്ടത്തിൽ ഇടുക്കിഡാം പരമാവധി സംഭരണശേഷിയിലേക്ക്

കർഗിൽ യുദ്ധ നായകരെ ഈ ദിനത്തിൽ ആദരിക്കും

ഓപ്പറേഷൻ വിജയ് കാലത്ത് രാഷ്ട്രത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുകയും ജീവ ത്യാഗം ചെയ്യുകയും ചെയ്ത എല്ലാ സൈനികർക്കും രാഷ്ട്രം നന്ദിയോടെ കർഗിൽ വിജയ് ദിവസിൽ ആദരാ ഞ്ജലിയർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറ ഞ്ഞു രാജൃം സുരക്ഷിതമായി നിലകൊളളുന്നുവെന്ന് നമ്മുടെ ധീരസൈനികർ ഉറപ്പുവരുത്തിയെന്നും സമാ ധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചവർക്ക് അനുയോജ്യ മറുപടി നല്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഓപ്പറേ ഷൻ വിജയിന് മികച്ച രാഷ്ട്രീയ നേതൃത്വം നല്കിയ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽബിഹാരി വാജ്പേയിയെ രാഷ്ട്രം എന്നും അഭിമാനത്തോടെ ഓർക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പി മാരുടെ രണ്ടാമത് സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് ന്യൂഡൽഹിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ഫലപ്രദമായ രീതിയിൽ മിക്കച്ച സേവനം കാഴ്ച വയ്ക്കാൻ സാങ്കേതിക ് മികവ് ഉപയോഗപ്പെടുത്തുന്നതിന് യുവ പൊലീസ് മേധാവികൾക്കും കമാൻഡൻസിനും അവബോധം സൃഷ്ടിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം

മൂന്നാം ഘട്ടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ട് മാസം കൂടി വേണമെന്ന് മന്ത്രി വൃക്തമാക്കി

മൺചിറ നീക്കുന്നത് സംബന്ധിച്ച തർക്കം ഉടൻ പരിഹരിക്കുമെന്നും മാത്യു ടി തോമസ് പറഞ്ഞു തണ്ണീർമുക്കം ബണ്ട് സന്ദർശിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി ലലലലലലലലലലലലല ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ തീരുമാ നമെടുക്കേണ്ടത് സുപ്രീംകോടതിയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു തിരുവിതാം കൂർ ദേവസ്വം ബോർഡ് വൃത്യസ്ത നിലപാട് എടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഗുവൺമെന്റ് നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

ഒന്നാം പ്രതി എബ്രഹാം വർഗീസ് നാലാംപ്രതി ജെയ്സ് കെ ജോർജ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക

കേസിലെ മുഖ്യപ്രതിയായ ഫാദർ റോബിനെ സഹായിക്കാൻ രേഖകളിൽ തിരിമറി നടത്തിയെന്നാണ് ഫാദർ തേരകത്തിന് എതിരായ കുറ്റം ലലലലലലലലലലലല സംസ്ഥാന ഹജ്ജ് കമ്മറ്റി വഴി ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കായി കെ എസ് ആർ ടി

നെടുമ്പാശ്ശേരി സിയാൽ അക്കാദമിയിൽ ഒരുക്കിയ ഹജ്ജ് കൃാമ്പിലേക്കാണ് സർവീസ് നടത്തുക

കെ ശശീന്ദ്രന്റെയും കെ ടി ജലീലിന്റെയും നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം കോഴിക്കോട് മലപ്പുറം ബസ് സ്റ്റാൻഡുകളിൽ നിന്ന് മൂന്ന് വീതം എ സി ലോ ഫ്ളോർ ബസുകളും തിരൂരിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ഓരോ ബസുമാണ് സർവീസ് നടത്തുക കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും രാവിലെ ആറിനും ഏഴിനും എട്ടിനും മണിക്ക് സർവീസ് നടക്കും തിരൂരിൽ നിന്നും രാവിലെ ഏഴ് മണിക്കും കൽപ്പറ്റയിൽ നിന്ന് രാവിലെ ആറ് മണിക്കു മാണ് സർവീസ്

റിക്രൂട്ട്മെന്റ് നടപടികളെ താറടിക്കുംവിധം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തുന്നതിനെതിരെ വിജിലൻസ് ഡി ജി പിക്ക് പരാതി നൽകിയതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ലല മഹാരാജാസ് കോളജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി ബെങ്കളൂരിവിൽ പിടിയിലായി തലശ്ശേരി സ്വദേശിയായ ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫയാണ് പിടിയിലാ യത് കൊച്ചിയിൽ എൽ എൽ ബി വിദ്യാർത്ഥിയാണ് റിഫ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ സംഘത്തെ വിളിച്ചുവരുത്തിയത് ഇയാളാണെന്ന് പൊലീസ് പറ ഞ്ഞു കൊലപാതകത്തിന്റെ ആസൂത്ര കരിൽ ഒരാൾ ഇയാളാണെന്നും കരുതുന്നു

ശിക്ഷാവിധിയുടെ പകർപ്പ് ലഭിച്ചശേഷം പിരിച്ചുവിടുന്നതടക്കം നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ തിരുവനന്തപുരത്ത് അറിയിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എ എസ് ഐ കെ ജിതകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എസ് വി ശ്രീകുമാർ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി ടി

വിധിയുടെ പകർപ്പ് സി ബി ഐ ഇന്ന് ഡി ജി പി ക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ട്

ഐ എൻ എൽ ഉൾപ്പടെ പാർട്ടികളെ മുന്നണിയിൽ എടുക്കുന്ന കാര്യം യോഗത്തിൽ ചർച്ചയായേക്കും

എന്നാൽ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി പദ വി യി ലേക്ക് എത്താൻ സാധ്യ ത യു ണ്ടെ ന്നാണ് വിലയിരുത്തൽ

ആനുപാതിക പ്രാതിനിധ്യം കണക്കാക്കി ഇവരെ പിന്നീട് പാർലമെന്റിൽ ഉൾപ്പെടുത്തും

ലലലലലലലലലലലലല കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശിയ പാതയിൽ വണ്ടിപ്പെരിയാർ നെല്ലിമല കക്കികവല എന്നിവിട ങ്ങളിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു വെള്ളം ഒഴുകിപ്പോവാനാവാതെ ഇവിടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് മേഖലയിൽ മഴ തുടരുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കാൻ സാധ്യതയുണ്ട്

ശനിയാഴ്ച വൈകീട്ട് ജെസ്നയെന്ന് തോന്നിക്കുന്ന പെൺകുട്ടി മെട്രോയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടുവെന്നാണ് ബെങ്കളൂരു സ്വദേശി പൊലീ സിന് മൊഴി നൽകിയത്

ട്രെയി നിനുളളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പൊലീസ് നടപടിയാരംഭിച്ചു

എ ബി വി പി പ്രവർത്തകൻ ശ്യാമപ്രസാദ് വധക്കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണ മെന്നും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നും

മാർച്ച് പൊലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ യുവ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡണ്ട് ബിജു ഏളക്കുഴി ഉദ്ഘാടനം ചെയ്തു

കെ പത്മിനി സ്മാരക പുരസ്കാരത്തിന് പ്രശസ്ത ശിൽപി കാനായി കുഞ്ഞിരാമൻ അർഹനായി